ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് നിയോജക മണ്ഡ്ലങ്ങളിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു വിശ്വാസ സംരക്ഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് ഒന്നും ചെയ്തില്ലെന്ന് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ സമുദായ സംഘടനകൾ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുന്നത് ശരിയായ സന്ദേശമല്ല നൽകുന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ

ഡി എഫ് അധികാരത്തിൽ വരു മെന്ന് കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ഗോൾഡൻ ഷൂ പുരസ്കാരം തുടർച്ചയായി മൂന്നാം തവണയും ലയണൽ മെസ്സിക്ക് സംസ്ഥാനത്ത് തുലാവർഷം തുടങ്ങിയതായി കാലാവസ്ഥാ വകുപ്പ് ങ്ങ ൽ ശ്വ ൾ ൾ ൾ ൾ ൾ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ബഹുരാഷ്ട്ര കമ്പനികളുടെ ഭക്ഷ്യ സാമ്രാജത്വം ചെറുക്കാൻ കഴിയണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഭിപ്രായപ്പെ ട്ടു പാരമ്പര്യ ഭക്ഷണത്തിലെ പോഷണ മൂല്യത്തെ കുറിച്ച് അവബോധം വർധി പ്പിക്കണം പോഷണ മാസാചരണത്തിന്റെ സമാപനവും ലോക ഭക്ഷ്യദിനാച രണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ പാര മ്പര്യ വിളകളെ പ്രോത്സാഹിപ്പിക്കുകയും ആരോഗ്യപൂർണ്ണവും വൈവിധ്യം ഉറപ്പാക്കുന്നതുമായ ഭക്ഷണ ശീലത്തിലേക്ക് ജനങ്ങളെ നയിക്കുകയും വേണം പ്രമേഹവും അമിതവണ്ണവും ഉൾപ്പെടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടൽ ആവശ്യമാണെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ സമീകൃത പോഷകം ഉൾപ്പെടുന്ന ഭക്ഷണങ്ങളെ സൂചിപ്പിക്കുന്ന സമ്പൂർണ തളികയും സമ്പുഷ്ട കേരളം ന്യൂസ് ലെറ്ററും ഗവർണർ പ്രകാശനം ചെയ്തു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് നിയോജക മണ്ഡലങ്ങളിലെ അന്തിമ വോട്ടർപ ട്ടിക പ്രസിദ്ധീകരിച്ചതായി മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു

വിശ്വാസ സംരക്ഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്തുവെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ ചോദിച്ചു

ആചാര സംരക്ഷണത്തിനായി നടന്ന ചരിത്ര പ്രക്ഷോഭമായിരുന്നു ശബരിമല സമരമെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചിയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യപ്രഭാഷണം നടത്തു കയായിരുന്നു കുമ്മനം

ഡി

എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷം മോദി ഗവൺമെന്റ് കൊണ്ടുവന്ന വികസനം മറ്റൊരു ഗവൺമെന്റിന്റേതുമായി താരതമ്യം ചെയ്യാ നാവില്ലെന്ന് തുഷാർ പറഞ്ഞു സമുദായ സംഘടനകൾ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുന്നത് ശരിയായ സന്ദേ ശമല്ല നൽകുന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാല കൃഷ്ണൻ അരൂരിൽ പറഞ്ഞു

ഡി എഫിന് ഒപ്പമാണെന്ന് എൻ

എസ് ജനറൽ സെക്രട്ടറി ഒരിക്കലും പറഞ്ഞിട്ടില്ല മൂന്ന് മുന്നണികൾക്കും ഒപ്പമാണ് എന്ന് തീരുമാനിക്കുന്നതാണ് ശരിദൂര നിലപാടെന്ന് കോടിയേരി അഭിപ്രായ പ്പെട്ടു

ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ

സംസ്ഥാന ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഉപതെരഞ്ഞെടുപ്പിൽ ജനവികാരം പ്രതിഫലിക്കുമെന്ന് ആന്റണി അഭിപ്രായ പ്പെട്ടു മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ബിടെക് വിദ്യാർത്ഥിക്ക് അദാലത്തിലൂടെ മോഡറേഷൻ മാർക്ക് നൽകാൻ തീരുമാനമെടുത്തിൽ മന്ത്രി കെ ടി ജലീ ലിന് ഒരു പങ്കുമില്ലെന്ന് വൈസ്ചാൻസിലർ ഡോ സാബുതോമസ് കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അദാലത്തിലൂടെ മാർക്ക് നൽകുന്നതിന് നിയമസാധുത ഇല്ലെന്ന കാര്യം അദാലത്ത് കമ്മിറ്റി അംഗങ്ങൾക്ക് അറിയില്ലാ യിരുന്നു അക്കാദമിക് കൌൺസിലിനും മാർക്ക് നൽകാൻ അധികാരമില്ലാത്ത തിനാൽ വിഷയം സിൻഡിക്കേറ്റിന്റെ പരിഗണനക്ക് വിട്ടു

കോഴിക്കോട് കൂടത്തായി കൊലപാതക കേസിലെ പ്രതികളുടെ കസ്റ്റഡി കാലാവധി രണ്ടുദിവസേത്ത് കൂടി നീട്ടിയതോടെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും തുടരും

പ്രതികളുടെ ജാമ്യാപേക്ഷ മറ്റന്നാൾ പരിഗണിക്കും ജോളിക്ക് വേണ്ടി ഇന്നലെ ജാമ്യപേക്ഷ സമർപ്പിച്ചു മറ്റ് രണ്ട് പ്രതികളും നേരത്തെ ജാമ്യാപേക്ഷ നല്കിയിരുന്നു ഇന്നലെ പ്രജികുമാറിന് ഭാര്യയുമായി സംസാരിക്കാൻ പത്ത് മിനുട്ട് സമയം കോടതി അനുവദിച്ചു കസ്റ്റഡി നീട്ടുന്നത് പ്രതിഭാഗം അഭിഭാഷകർ എതിർത്തു അതേസമയം കേസിലെ പരാതിക്കാരനായ റോജോയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായി ആറ് കുറിച്ചും അന്വേഷണ മരണങ്ങളെ സംഘം വെവ്വേറെ മൊഴിരേഖപ്പെടുത്തിയതായി റോജോ പറഞ്ഞു ഫ്രാൻസിസ്ക്കൻ ക്ലാരിസ്റ്റ് സന്യാസസഭയിൽ നിന്നും പുറത്താക്കിയതിനെതിരെ സിസ്റ്റർ ലൂസി കളപ്പുര നൽകിയ അപ്പീൽ വത്തിക്കാൻ തള്ളി അപ്പീൽ നൽകിയതിന് മറുപടിയായി അപ്പീൽ തള്ളി എന്നറിയിച്ച് കത്ത് ലഭിച്ചതായി സിസ്റ്റർ ലൂസി കളപ്പുര അറിയിച്ചു ഒരു ഫോൺ കോളിലൂടെ പോലും തന്റെ വാദം കേൾക്കാൻ സഭ തയാറായിട്ടില്ലെന്നും അവർ പറഞ്ഞു ഈ സാഹചര്യത്തിൽ സഭ വിട്ടിറങ്ങാൻ തയാറല്ല എന്നതാണ് നിലപാടെന്ന് സിസ്റ്റർ ലൂസി വ്യക്തമാക്കി ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ വിജയകരമായ പുരോഗതി അവസാനത്ത യാളിന്റെയും ഉയർച്ചയെന്ന പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായയുടെ ലക്ഷ്യത്തോടടുക്കുന്നതിന് തെളിവാണെന്ന് ആരോഗ്യ മന്ത്രി ഡോ ഹർഷ വർധൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു കേന്ദ്രത്തിന്റെ സുപ്രധാന പദ്ധതികളിൽ ഒന്നായ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഓരോ മിനുട്ടിലും ഒമ്പത് പേർക്ക് ആശുപത്രികളിൽ ചികിത്സ ലഭ്യമാകുന്നതായി സ്ഥിതി വിവരകണക്കുകൾ വെളിപ്പെടുത്തുന്നു അയോധ്യാ ഭൂമി തർക്ക കേസിലെ വാദം പൂർത്തിയായ സാഹചര്യത്തിൽ മധ്യസ്ഥ സമിതി നൽകിയ റിപ്പോർട്ട് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് ഇന്ന് പരി ഗണിച്ചേക്കും കേസിൽ സുപ്രീംകോടതി നിയോഗിച്ച മധ്യസ്ഥ സമിതി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കോടതിക്ക് കൈമാറിയതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ഭൂമി തർക്കം പരിഹരിക്കാൻ വഴിയൊരുക്കുന്ന നിർദേശം റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന

ഇന്നലെ ഡൽഹിയിൽ രാജ്യരക്ഷാ മന്ത്രി രാഡ്നാഥ് സിങ്ങിന്റെ വസതിയിൽ ചേർന്ന പാർലമെന്ററി കാര്യ മന്ത്രിസഭാ സമിതി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതാ യാണ് റിപ്പോർട്ട് യൂറോപ്യൻ സ്പോർട്സ് മീഡിയയുടെ ഗോൾഡൻ ഷൂ പുരസ്കാരം തുടർച്ചയായി മൂന്നാം തവണയും ബാഴ്സലോണ താരം ലയണൽ മെസ്റ്റിക്ക് ആറാം പ്രാവ ശൃമാണ് മെസ്സി ഈ ബഹുമതി സ്വന്തമാക്കുന്നത്

വിജയ് ഹസാരെ ക്രിക്കറ്റ് ട്രോഫിയിൽ ആന്ധ്രപ്രദേശിനെ തകർത്ത് കേരളത്തിന് നാലാം ജയം ഓപ്പണർ വിഷ്ണു വിനോദിന്റെ സെഞ്ചറി മികവിൽ കേരളം ആന്ധ്രയെ ആറു വിക്കറ്റിന് പരാജയപ്പെടുത്തുകയായിരുന്നു സംസ്ഥാനത്ത് തുലാവർഷം തുടങ്ങിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് തിരുവനന്തപുരം മുതൽ വയനാട് വരെ പത്ത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

ഉച്ചയ്ക്ക് ശേഷം ശക്തമായ ഇടിയും മിന്നലും ഉണ്ടാകാനും സാധ്യത യുണ്ടെന്ന് ദുരന്തനിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി

മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് അതോറിറ്റി നിർദേശിച്ചു

പാലയാട്ടെ പ്രബിലേഷ് ആണ് മരിച്ചത്

അടിസ്ഥാന ജനതയുടെ സാമൂഹിക സുരക്ഷിതത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു സാമൂഹ്യ ഐകൃദാർഢ്യ പക്ഷാചരണം സംസ്ഥാനതല സമാപന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പട്ടികജാതി പീഡന നിരോധന നിയമത്തെ ലഘൂകരിച്ച് സുപ്രീംകോടതി വിധി വന്നപ്പോൾ എതിർപ്പുമായി രാജ്യത്ത് ആദ്യമായി മുന്നോട്ട് വന്നത് കേരളമാമെന്നും മന്ത്രി പറഞ്ഞു നെതർലാന്റ് രാജാവ് വില്യം അലക്സാണ്ടറും രാജ്ഞി മാക്സിമയും രണ്ടു ദിവ സത്തെ കേരള സന്ദർശനത്തിനായി ഇന്ന് കൊച്ചിയിലെത്തും ഉച്ചയ്ക്ക് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ രാജ ദമ്പതിമാർക്ക് ഔദ്യോഗിക സ്വീകരണം നൽകും ഗവർണ്ണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രി സി രവീന്ദ്രനാഥ് എന്നിവ രുടെ നേതൃത്വത്തിൽ വിശിഷ്ടാതിഥികളെ സ്വീകരിക്കും ഡച്ച് പാലസ് സന്ദർശിക്കുന്ന രാജ ദമ്പതികൾ ഡച്ച് കമ്പനിയായ നെഡ് സ്പൈസിലെത്തി പ്രവർത്തനം വീക്ഷിക്കും തുടർന്ന് വെല്ലിങ്ടൺ ഐലന്റിൽ മുഖ്യമന്ത്രി പിണ റായി വിജയനുമായി അവർ കൂടിക്കാഴ്ച നടത്തും

ഡി

എസ് സി പരീക്ഷയും കാരണം മാറ്റിവെക്കുക യായിരുന്നു തൊഴിയൂർ സുനിൽ വധക്കേസ് പ്രതികൾ മറ്റൊരു കൊലപാതകം കൂടി നടത്തിയതായി പോലീസ് വെളിപ്പെടുത്തി മലപ്പുറത്തെ ബിജെപി പ്രവർത്തകൻ മോഹനചന്ദ്രനെ വധത്തിനു പിന്നിലും ഇവർ തന്നെയായിരു ന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ ബോധൃമായി

ഭരണഘടന ഉറപ്പ് നല്കുന്ന എല്ലാ അവകാശങ്ങളും കുട്ടികൾക്കും അർഹതപ്പെട്ടതാണെന്ന് ഡോ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു ഭരണഘടനയുടെ എഴുപതാം വാർഷികത്തിന്റെ ഭാഗമായി നൈതികം എന്ന പേരിൽ വിദ്യാഭ്യാസവകുപ്പ് നടപ്പാക്കുന്ന സംസ്ഥാനതല പരിപാടി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ ഇടതു ഗവൺമെന്റ് കുത്തഴിഞ്ഞ പുസ്തകമാക്കി മാറ്റിയെന്ന് മുസ്ലിംലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

ജി സർവ്വകലാശാലയിലെ കൂട്ടമാർക്ക് ദാനം കേരള വിദ്യാഭ്യാസ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പ്രസ്താവനയിൽ പറഞ്ഞു